മത്സരം രാത്രി എട്ടിന്

വിവിധ കക്ഷികളിലെ പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട് മുതിർന്ന ബി

നേതാവു കൂടിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദ്ദേശിൽ ഇന്ന് രണ്ട് തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും

ജെ

കോൺഗ്രസ്സ് അധ്യ ക്ഷൻ രാഹുൽ ഗാന്ധി ബരാബംഗിയിലെ രാംനഗറിൽ പാർട്ടി സ്ഥാനാർത്ഥി തനൂജ് പുനിയയ്ക്കായി വോട്ട് തേടും സിതാപൂർ ജില്ല യിലെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ശ്രീ

കോൺഗ്രസ്സ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി റായ്ബറേലി യിൽ പൊതുയോഗത്തിൽ സംബന്ധിക്കുകയും വൈകിട്ട് അമേഠിയിൽ റോഡ് ഷോ നടത്തുകയും ചെയ്യും

പി ബി എസ്

സഖ്യത്തിന്റെ സംയുക്ത റാലിയിൽ പാർട്ടി അധ്യക്ഷരായ അഖിലേഷ് യാദവും മായാവതിയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും

വെള്ളിയാഴ്ച ഉച്ചയ്ക്കുശേഷം ചുഴലിക്കാറ്റ് അതി തീവ്രമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകേന്ദ്രം മുന്നറിയിപ്പ് നല്കി

ഒഡീഷ പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദ്ദേശിന്റെ വടക്കൻ തീരം എന്നിവിടങ്ങളിലും ജാഗ്രതാ ന്നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ബംഗാൾ ഉൾക്കടലിന്റെ പശ്ചിമ മധ്യപ്രദേശങ്ങൾ പുതുശ്ശേരി തീരം വടക്കൻ തമിഴ്നാട് തീരം ആന്ധ്രാപ്രദേശിന്റെ ദക്ഷിണ പ്രദേശം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി

ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതി നിരന്തരം നിരീക്ഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയായിരുന്നു

മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഈ വർഷം ഔദ്യോഗിക ആഘോഷപരിപാടികൾ ഉണ്ടാവില്ല

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു സംസ്ഥാനം വികസന കുതിപ്പിൽ മുന്നേറട്ടേ എന്ന് രാഷ്ട്രപതി പറഞ്ഞു പുതിയ സംരംഭങ്ങളുടെ ആവിർഭാവത്തിൽ ഗുജറാത്ത് മാതൃകയാണെന്ന് ശ്രീ നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു

തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവിധം മതപ്രഭാഷണം നടത്തിയ ഏതാനും വിദേശ പൌരന്മാരെ ഗവൺമെന്റ് ഇതിനകം നാടുകടത്തിയിട്ടുണ്ട് വിവാദ മതപ്രഭാഷകൻ സക്കീർ നായിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ടി

ഭീകരതയ്ക്കെ തിരായ നീക്കങ്ങളിൽ കൃശ്രീലങ്ക ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും വിക്രമസ്സി്റ്റ് അറിയിച്ചു

പുരുഷ വനിതാ തൊഴിലാളികളുടെ അദ്ധാനത്തിന് ആദരവ് നൽകുന്നതിനാണ് എല്ലാവർഷവും ഈ ദിനം ആചരിക്കുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിന് തൊഴിലാളികളെ ഒന്നിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു എന്നിവർ തൊഴിലാളികൾക്ക് ആശംസകൾ നേർന്നു രാജ്യത്തുള്ള അസംഖ്യം തൊഴിലാളികളുടെ മനക്കരുത്തിന്റെ സമർപ്പണമാണ് നമ്മുടെ രാജ്യനിർമ്മിതി കൂടുതൽ മെച്ചപ്പെട്ട ഒരു നവീന ഇന്ത്യയ്ക്കുള്ള അടിസ്ഥാനമായ തൊഴിലാളികളുടെ സമർപ്പണ മനോഭാവത്തിന്റെ ആഘോഷമാണ് ഇത് എന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു രാഷ്ട്ര നിർമ്മാണത്തിൽ തൊഴിലാളികളുടെ കഠിനപ്രയത്നത്തെയും ഉത്തരവാദിത്വബോധത്തെയും അഭിവാദ്യം ചെയ്യുന്നു എന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു അവരുടെ അന്തസ്സിനെയും അവകാശങ്ങളെ യുംപറ്റി ബോധമുണ്ടായിരിക്കണമെന്നും പൂശീ വെങ്കയ്യ നായിഡു പറഞ്ഞു

ഭൂമിയുടെ വിപണി വിലയും ഗവൺമെന്റ് നിശ്ചയിച്ച ന്യായവിലയും തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ടു വരുന്നതിന്റെ ഭാഗമായാണ് ന്യായവില വർധന ധനവകുപ്പ് കഴിഞ്ഞ ബജറ്റിൽ നിർദ്ദേശിച്ച വിലവർധനയാണിത്

നുറോളം പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

സംഭവത്തെക്കുറിച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പ് അന്വേഷണം തുടങ്ങി

ടോക്കിയോയിലെ ഇംപീരിയൽ കൊട്ടാരത്തിൽ രാവിലെ നടന്ന ചടങ്ങിലാണ് നറുഹിതോ സ്ഥാനമേറ്റത്

നറുഹിതോയുടെ ഭരണകാലം റെയ്വാ യുഗം എന്നാണ് അറിയപ്പെടുന്നത് ക്രമം സൌഹാർദ്ദം എന്നതാണ് ഈ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജപ്പാനിൽ ഓരോ ചക്രവർത്തിയുടെയും ഭരണകാലം ഓരോ പ്രത്യേക യുഗമായിട്ടാണ് അറിയപ്പെടുന്നത് ഹെയ്ബെയ് ഭരണയുഗത്തിന് അന്ത്യംകുറിച്ച് അകിഹിതോ ചക്രവർത്തി ഇന്നലെ സ്ഥാനം ഒഴിഞ്ഞിരുന്നു

അധികാരങ്ങളില്ല സ്ഥാന്ചിഹ്നംമാത്രമാണ് ചക്രവർത്തി പദം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും രാത്രി എട്ട് മണിക്ക് ചെന്നൈയിലാണ് മത്സരം

രണ്ടു ടീമുകളും ഇതിനകം പ്ലേ ഓഫിന് അർഹത നേടിയിട്ടുണ്ട്

പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ പി കശ്യപ് ബി സായി പ്രണീത് എച്ച് എസ് പ്രണോയ് ശുഭാങ്കർ ഡേ ലക്ഷ്യാസെൻ എന്നിവർ മത്സ്ട്ര്ംഗത്തുണ്ട് ഡബിൾസിലും ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും

ഗഡ് ചിരോലി ജില്ലയിലെ കുർഖേഡാ താലൂക്കിലെ ദാപ്പൂർ മേഖലയിലാണ് സംഭവം

തലസ്ഥാനമായ കരാക്കസ്സിലായിരുന്നു സുരക്ഷാ സൈന്യവുമായി ഏറ്റുമുട്ടലുണ്ടായത്

മരിച്ചവരിൽ പേരെ മൂന്നുപേരും സ്ത്രീകളാണ് ഇവരെ വീടിനുള്ളിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്ന് വെസ്റ്റ് ചെസ്റ്റർ പോലീസ് മേധാവി പറഞ്ഞു

യുടെ ്യൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ സർവ്വീസുകളുടെ സമയക്രമിൽ നിശ്ചിത ഇടവേളകളിൽ പുനക്രമീക രിക്കും